എ മാർ രാജിവച്ചതിനെ തുടർന്നുള്ള സ്ഥിതി നേരിടാൻ കോൺഗ്രസ്സിൽ തിരക്കിട്ട കൂടിയാലോചനകൾ

ഭൂമി രജിസ്ട്രേഷൻ കുറ്റ്മറ്റതാക്കാൻ സമഗ്ര നിയമം ആവിഷ്ക്കരിക്കണ്ണ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു

കാനഡ ഓപ്പൺ ബാഡ്മിന്റണിൽ പി കശ്യപ് ഫൈനലിൽ

ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ചൊവ്വാഴ്ച ഇന്ത്യ നറസിലാൻിനെ നേരിടും രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും ഫൈനൽ ഞായറാഴ്ച

എ മാരും മൂന്ന് ജെ ഡി എസ് എം

എ മാരും ഇന്നലെ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാവിലെ തിരക്കിട്ട് കൂടിയാലോചകൾ നടത്തുകയാണ് മുതൽ രാജി പിൻവലിപ്പിക്കുന്നതിനായി വിമത കോൺഗ്രസ് എം

അതേസമയം രാജിമൂലമുണ്ടായ പ്രതിസന്ധിയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ബി ജെ പി നേതാവ് ആർ

മുഖ്യമന്ത്രി എച്ച്

ചൊവ്വാഴ്ച രാജികത്തുകൾ പരിശോധിക്കുമെന്ന് സ്പീക്കർ രമേശ് കുമാർ പറഞ്ഞു

മഴവെള്ള സംഭരണ്ട്തെക്കുറിച്ച് പുറപ്പെടുവിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭൂ ജല വിനിയോഗം മഴവെള്ളുക്ക് സംഭരണം എന്നിവ സെൽ നിരീക്ഷിക്കണമെന്നും ക്ട്രെന്ദ് നഗരകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്

ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിമാചൽപ്രദേശ് ചീഫ് സെക്രട്ടറി ബി

അഗർവാൾ രചിച്ച ലാന്റ് രജിസ്ട്രേഷൻ ഗ്ലോബൽ പ്രാക്റ്റീസസ് ലെസൻസ് ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

കാർഷിക മേഖലയ്ക്ക് ഉത്തേജനമാണിതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു സബ്സിഡി കർഷകർക്ക് നേരിട്ട് ലഭിക്കും

ഗോവയിലെ പനാജിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല യാത്രക്കാരുടെ സുരക്ഷ സുരക്ഷിതയാത്ര ട്രാക്ക് നവീകരണം എന്നിവയാണ് മുന്നിലുള്ള സുപ്രധാന വിഷയങ്ങൾ ചരക്കുനീക്കം വർദ്ധിപ്പിക്കാനും വിപുലമായ സംവിധാനം ഒരുക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ റെയിൽവേയിലെ നിക്ഷേപം ഇരട്ടിയായി

കൂടുതൽ വിവരങ്ങളുമായി മല്ലിക

ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് യാത്രയിലുടനീളം ഏർപ്പെടുത്തിയിട്ടുള്ളത് അമർനാഥ് ക്ഷേത്ര ബോർഡ് ചീഫ് എക്സിക്യൂട്ടീസ് ഉമങ് നരുല ഇന്നലെ വിവധ ക്യാമ്പുകളിലെ സ്ഥിതി വിലയിരുത്തി പഹൽഗാം വികസന അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നത്

സംരക്ഷണത്തിന് യാത്രയിലുടനീളം പാലിക്കേണ്ട സുരക്ഷാ ശുചിത്വ കാര്യങ്ങളെക്കുറിച്ച് ക്ഷേത്രബോർഡ് തീർത്ഥാടകർക്ക് വ്യക്തമായ മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആവിഷ്ക്കരിച്ച വിവിധ പദ്ധതി നടത്തിപ്പുകളെ അദ്ദേഹം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നലെ വിലയിരുത്തി

ഈ കേന്ദ്രങ്ങളിൽ ശൌചാലയം മാലിന്യ സംസ്കരണം കുടിവെള്ളം വെയിറ്റിംഗ് ഷെഡ് എന്നിവ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കും

തലസ്ഥാനമായ ഇറ്റാനഗറിലായിരിക്കും കേന്ദ്രങ്ങൾ ആർടിക്കുക

ഭരണകക്ഷികളുമായി അധികാര പങ്കിടൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണിത് സിവിലിയൻ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭരണ സൈനിക സമിതിയും ഫ്രീഡം സഖ്യവും ചേർന്ന് സംയുക്ത ഭരണസമിതി രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചു

ഇന്നലെ നടന്ന് ഷൂർുഷ സിംഗിൾസ് സെമി ഫൈനലിൽ തായ്വാന്റെ വാങ് സുപ്പിട്ടിയാണ് കശ്യപ് തോൽപ്പിച്ചത്

നാളെ ന്നടക്കുന്ന ഫൈനലിൽ കശ്യപ് ചൈനയുടെ ലീ ഷീ ഫെങിനെ നേരിടും

സിസി ലോകകപ്പ് ക്രിക്കറ്റിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ന്യൂസിലന്റിനെ നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ ഏഴു വിക്കറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്

മുൻ ലോക ഒന്നാംനമ്പർ സിമോണ ഹാലപ്പാണ് ഗോഫിന്റെ അടുത്ത എതിരാളി

ഡിജ്ടിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് സൌദി ഈ സംവിധാന്റ് ഒരുക്കുന്നത് കൂടുതൽ വവരങ്ങളുമായി മു വോയിസ് ഹജ്ജ് ആപ്തിക്കേഷൻ ആവിഷ്ക്കരിച്ചതിനെ തുടർന്ന് സൌദിയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുന്നതിനും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൂടുതൽ സൌകര്യം ലഭിക്കും അതിനുപുറമേ തീർത്ഥാടകരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി കാലവിളംബം കൂടാതെ സേവനം മെച്ചപ്പെടുത്താനും നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കഴിയും

അതിനിടെ ചില വ്യാജ ടൂർ ഓപ്പറേറ്റർമാരുടെ കബളിപ്പിക്കലിന് വിധേയമായി ഒറ്റപ്പെട്ടുപോയ തീർത്ഥാടകർക്ക് സഹായവുമായി സ്ഥാനപതി കാര്യാലയം രംഗത്തെത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതോടനുബന്ധിച്ച് ഗുലാംഗ്ലൂബി ആസാദ് അഹമ്മദ് പട്ടേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നു

ഈ ദിവസങ്ങളിൽ നിശ്ചിത ഫാറത്തിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു

കേരളാ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വ യോഗം പത്തനംതിട്ടയിൽ ഉത്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം